പശ്ചിമഘട്ട പരിസ്ഥിതി ലോല മേഖലയിൽ കുറവു വരുത്താൻ പാടില്ലെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ ു ജക്കാർത്ത ഏഷ്യൻ ഗെയിംസിന് ഇന്ന് സമാപനം

സംസ്ഥാനം നേരിട്ട ദുരന്തത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് ഇതിന്റെ വില ദേശീയ ദുരന്ത നിവാ രണ സഹായ ഫണ്ടിൽ നിന്ന് വെട്ടിക്കുറയ്ക്കരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു തൽക്കാലം വില് ഈടാക്കുന്നി ല്ലെങ്കിലും പിന്നീട് സംസ്ഥാനത്തിന് അനുവദിക്കുന്ന മറ്റ് പദ്ധതികളിൽ നിന്നോ ഫണ്ടുകളിൽ നിന്നോ വില തിരി ച്ചുപിടിക്കുമെന്നാണ് ഭക്ഷ്യമന്ത്രാലയം അറിയിച്ചത് ഇത് സംസ്ഥാനത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു

അവർ കാണിച്ച ധീ രതയും തൃാഗസന്നദ്ധതയും സഹജീവി സ്നേഹവും അ ങ്ങേയറ്റം വിലമതിക്കപ്പെടേണ്ടതാണെന്നും മന്ത്രി അഭി പ്രായപ്പെട്ടു പ്രളയ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത കണ്ണൂർ ജില്ലയിലെ മത്സ്യതൊഴിലാളികളെ ആദരിക്കാൻ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു

കോഴിക്കോട്ട് സംസ്ഥാനത്ത് ആദ്യമായി സംഘടിപ്പിച്ച താലൂക്ക്തല വിവരശേഖരണ അദാലത്തിനോട് അനുബന്ധിച്ചായി രുന്നു ബോധവത്ക്കരണം വെളളപ്പൊക്കമുണ്ടായ ഇട ങ്ങളിൽ എലിപ്പനി വ്യാപനത്തിന് സാധൃതയുണ്ടെന്നും എല്ലാവരും പ്രതിരോധ ഗുളികകൾ കഴിക്കണമെന്നും മന്ത്രിമാർ നിർദ്ദേശിച്ചു

ഇവയിൽ ഒന്ന് എലിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്

മന്ത്രി ടി പി രാമകൃ ഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

വയനാ ട്ടിലെ ബാണാസുര സാഗർ അണകെട്ട് തുറന്നുവിട്ടതി നെതിരെ ജില്ലാകലക്ടർ നടത്തിയ പ്രസ്താവനയും തെറ്റാണെന്ന് മന്ത്രി അറിയിച്ചു പ്രളയക്കെടുതിയെപ്പറ്റി പ്രതിപക്ഷനേതാവ് നടത്തുന്ന് ആരോപണങ്ങളും കഴമ്പില്ലാത്തവയാണെന്ന് മന്ത്രി വൃക്തമാക്കി

ഗതി മാറി ഒഴുകുന്ന പമ്പാനദിയെ പഴയ സ്ഥാനത്ത് കൂടി ഒഴുക്കാൻ മണ്ണ് നീക്കിയപ്പോഴാണ് പാലം കണ്ടെത്തിയത്

മഴക്കെടുതിയിൽ ഇരിട്ടി താലൂക്കിൽ മരണപ്പെട്ട അഞ്ചു പേരിൽ രണ്ട് പേരുടെ ആശ്രിതർക്ക് നാല് ലക്ഷം രൂപവീതവും നൽകി സംസ്ഥാന ഭാഗൃക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന നവകേരള ഭാഗൃക്കുറി ടിക്കറ്റി ന്റെ കണ്ണൂർ ജില്ലാതല വിൽപ്പന നാളെ മന്ത്രി കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്യും

ജില്ലാ പഞ്ചായ ത്ത് പ്രസിഡ് കെ

ലലലലലലലലലലലലല കൊല്ലം ജില്ലയിൽ പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണം അടക്കം പുനർനിർമാണ പ്രവർത്തനങ്ങൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കണക്കുന്ന് ജില്ലാ വികസനസമിതി നിർദേശിച്ചു പുനർനിർമാണ പദ്ധതികൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉടൻ സമർപ്പിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു

പാതയുടെ ഒരു വശത്തെ പാറപൊട്ടിച്ച് വീതി വർധിപ്പിക്കുകയും റോഡ് ഒലിച്ചുപോയ ഭാഗത്ത് കല്ലും മക്കുമിട്ട് നികത്തി വാഹനം കടത്തിവിടാനും ക്രമീകരണങ്ങളാണ് നടത്തിയത് ലലലലലലലലലലലല ഇടുക്കി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രിധിയിലും ഇന്ന് മെഗാ ക്ലീനിങ് ഡ്രൈവ് നടത്തും തദ്ദേശ സ്ഥാപനത്തിലെ ദുരന്ത ബാധിതമായ മുഴുവൻ പൊതു ഇടങ്ങളും പ്രദേശങ്ങളും ശുചീകരണം പൂർത്തിയാവാത്ത വീടുകളും വൃത്തിയാക്കും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ബസ്റ്റാന്റിലാണ് ഉദ്ഘാട നചടങ്ങ് ലലലലലലലലലലലലല പ്രളയം മൂലം ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധി വാസ സഹായത്തിനായി പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഇന്ന് കാരുണ്യാത്ര നടത്തും

പകരം യാത്ര ക്കാർ നൽകുന്ന സംഭാവനകൾ സംഭരിച്ച് മുഖ്യമന്ത്രി യുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് നല്കും

ജില്ലാഭരണകൂടം ആദ്യ ഘട്ടത്തിൽ കൃാമ്പുകൾ കേന്ദ്രീകരിച്ചും പിന്നീട് വില്ലേജുകൾ കേന്ദ്രീ കരിച്ചുമാണ് കിറ്റുകൾ കൈമാറിയത്

ലലലലലലലലലലലല പ്രളയ ദുരിതാശാസ നടപടികളിലും പുനരധിവാസ ത്തിലും രാഷ്ട്രീയ വിവേചനം പാടില്ലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറിയും രാജ്യസഭാ പ്രതി പക്ഷ നേതാവുമായ ഗുലാം നബി ആസാദ് അഭിപ്രായപ്പെട്ടു രാജ്യത്ത് പലയിടത്തും ഇത്തരം സന്ദർഭങ്ങളിൽ സ്വജന പക്ഷപാതവും ക്രമക്കേടുകളും നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു പ്രളയ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിച്ച മത്സ്യത്തൊഴിലാളി കളെ ആദരിക്കാൻ ജില്ലാകോൺഗ്രസ് കമ്മറ്റി സംഘടി പ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗുലാം നബി ആസാദ്

ഇന്നലെ ഗവർണർ പി സദാശിവത്തെ നേരിൽ കണ്ട മുഖ്യമന്ത്രി ചികിത്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു സംസ്ഥാനത്തെ പുനർനിർമ്മിക്കാനും പ്രളയ ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനും സ്വീകരിച്ച നട പടികൾ ഗവർണറെ അറിയിച്ചതായി രാജ്ഭവൻ കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തി

കേരളത്തിൽ അടുത്തിടെയുണ്ടായ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കസ്തൂരിരംഗൻ കരട് റിപ്പോർട്ടിൽ മാറ്റം വരുത്തുന്നത് ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാ ക്കുമെന്ന് ട്രിബ്യൂണൽ ബെഞ്ച് വ്യക്തമാക്കി

ഗോവ ഫൌണ്ടേഷൻ സമർപ്പിച്ച ഹർജിയിലാണ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്

മീറ്റർ ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള ളുന്നതാണ് ട്രിബ്യൂണലിന്റെ നടപടി

ജന്മാഷ്ടമിയോടനുബ ന്ധിച്ച് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും നടക്കും പ്രളയവും തുടർന്നുണ്ടായ കെടുതികളും മൂലം ആഘോഷങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥനാ ദിനമായി ആച രിക്കുമെന്ന് ബാലഗോകുലമടക്കം സംഘടനകൾ അറി യിച്ചു

മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നല്കി കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാൻ റൺവേ അറ്റകുറ്റപ്പണികൾ തടസ്സമായതിനെ തുടർന്നാണ് എംബാർക്കേഷൻ കേന്ദ്രം തത്ക്കാലം നെടുമ്പാശ്ശേരിയിലേക്ക് മാറ്റിയത് ഇപ്പോൾ വലിയ വിമാനങ്ങൾ ഇറങ്ങാൻ വ്യോമയാന ഡയറക്ട റേറ്റ് ജനറൽ അനുമതി നല്കിയിട്ടുണ്ടെന്ന് മുഖൃമന്ത്രി അറിയിച്ചു ഏകീകൃത സിവിൽ കോഡ് ആവശൃമില്ലെന്ന നിയമകമ്മീഷൻ കാഴ്ചപ്പാടിനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലീം ലീഗ് സ്വാഗതം ചെയ്തു

ആറങ്ങോട്ട് കുളമ്പ് മുണ്ടൂർ കഞ്ചിക്കോട് മേഖലകളിൽ വീണ്ടും കാട്ടാനശല്യം രൂക്ഷ മായതിനെ തുടർന്നാണ് നിർദ്ദേശം

ഇതേ തുടർന്ന് ബെങ്കലൂരു കണ്ണൂർ അടക്കം ട്രെയിനുകൾ വിവിധ ദിവസങ്ങളിൽ റദ്ദാക്കി